അതിനൂതനമായ വിദ്യാഭ്യസം നൽകണമെന്ന് പ്രധാനമന്ത്രി മൈസൂർ സർവകലാശാലയുടെ നൂറാമത് ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു

തലസ്ഥാനമായ ഡൽഹിയിൽ ശ്വാസകോശ ആസ്മ രോഗികളുടെ എണ്ണത്തിൽ വർധന

കിങ്സിനെ നേരിടും ഡെന്മാർക്ക് ഓപ്പൺ വനിതാ കിരീടം ജപ്പാന്റെ നൊസോമി ഒക്കുഹാരക്ക്

മൈസൂർ സർവകലാശാലയുടെ നൂറാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാനപരമായി നവീകരിക്കും ആഗോള സാങ്കേതികവിദൃയും പ്രാദേശിക സംസ്കാരവും ഒത്തുചേർന്ന് പുതിയ വിദ്യാഭ്യാസ സംസ്കാരം രൂപീകരിക്കണമെന്ന് അദ്ദേഹിം പറഞ്ഞു

ഉന്നതവിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്ത്ം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക തൊഴിൽ ്മേഖലകളിലെ പരിവർത്തനങ്ങളും രാജ്യത്തെ വലിയ രീതിയിൽ വളർച്ചയിലേക്ക് നയിക്കും രാജ്യത്തെ മെഡിക്കൽ പിദ്യാഭ്യാസ് രംഗത്ത് കൂടുതൽ സുതാര്യതയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിവിധ നടപടികളാണ് സ്വീകരിച്ചുവരുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിരവധി പ്രതിഭകളെ സൃഷ്ടിച്ച സർവകലാശാലയാണ് മൈസൂർ സർവകലാശാല എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു കർണാടകയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അദ്ദേഹം എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ്വർദ്ധനും പരിപാടിയിൽ പങ്കെടുക്കും

പിന്നീട് വെൽക്കം ട്രസ്റ്റൂട്ട് ഇതിന്റെ ഭാഗമായി കൃഷി പോഷണം ശുചിത്വം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം തുടങ്ങി വിവിധ പിക്സന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തുകയാണ് ഗ്ഗാൻഡ് ചലഞ്ചിന്റെ ലക്ഷ്യം

ആഗോള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ അന്താരാഷ്ട്ര ശാസ്ത്രീയ സഹകരണം യാഥാർഥ്യമാക്കാൻ സമ്മേളനം സഹായിക്കും മൂന്ന് ദിവസത്തെ പരിപാടിയിൽ മഹാമാരിയെ നേരിടാനുള്ള ശാസ്ത്രീയ കണ്ടെത്തലുകൾ വികസന കുതിപ്പ് വീണ്ടെടുക്കൽ ഭാവിയിൽ ഇത്തരം മഹാമാരി ഒഴിവാക്കൽ തുടങ്ങി നിരവധി സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും

സയൂര ഗജബാഹു എന്നീ ശ്രീലങ്കൻ നാവിക സേന കപ്പലുകൾ പങ്കെടുക്കുന്ന അഭ്യാസത്തിൽ ശ്രീലങ്കൻ സേനയെ റിയർ അഡ്മിറൽ ഭണ്ഡാര ജയിതിലക നയിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലുകൾ ആയ കമോർത്ത കിൽത്താൻ എന്നിവ റിയർ അഡ്മിറൽ സഞ്ജയ് വാൽസ്യായന്റെ നേതൃത്വത്തിൽ സൈനിക അഭ്യാ്സത്തിൽ പങ്കെടുക്കും

അതിനിടെ ബിഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുകയാണ് ഭരണ പ്രതിപക്ഷ നേതാക്കൾ എല്ലാം പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആറ് മാസത്തിലധികമായി മെട്രോ സർവീസ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു യാത്രക്കാർക്കായി പ്രത്യേക മാനദണ്ഡങ്ങളും നിർദേശിച്ചിട്ടുണ്ട്

ശൈത്യകാലം ആരംഭിക്കുന്നതോടെ കുറഞ്ഞ താപനിലയും അന്തരീക്ഷത്തിലെ ഉയർന്ന മലിനീകരണ നിരക്കും ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ ഉയരാൻ കാരണമാകുമെന്നും ജനങ്ങൾ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

ഗവേഷണ വികസന മേഖലയെ സ്വയംപ്പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ സഹായ്ടിക്കുന്ന് വിധത്തിലാണ് മാറ്റങ്ങൾ കൊണ്ട് വരുന്നത് ഉന്നത ഗവേഷ്ണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങൾ ഇനി മുതൽ സ്റ്റാർട്ടപ്പുകൾക്കും വൃവസായങ്ങൾക്കും ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭ്യമാകും

കൽബുർഗി വിജയപുര ജില്ലകളിൽ കരസേന ദേശീയ ദുരന്ത പ്രതികരണ സേന എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാ നടപടികൾ പുരോഗമിക്കുകയാണ്

എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും

ഇന്നലെ രണ്ടാം സൂപ്പർ ഓവറിലേക്ക് കടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പഞ്ചാബ് തോൽപിച്ചു

ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹൈദരാബാദ് സൺ റൈസേഴ്സിനെ പരാജയപ്പെടുത്തി സൂപ്പർ ഓവറിലാണ് കൊൽക്കത്തയും വിജയം കണ്ടത്

പുരുഷ വിഭാഗം സിംഗിൾസിൽ ഡെൻമാർക്ക് ആൻഡേഴ്സ് ആൻഡോർസനും ഡബിൾസിൽ ഇംഗ്ലണ്ടിന്റെ മർക്കസ് എല്ലിസ് ക്രിസ് ലാൻഗ്രിഡ്ജ് സഖ്യവും ജേതാക്കളായി

ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് സി

വിമാനത്താവള നടത്തിപ്പിനായി കേരളത്തിന് പരിഗണന വേണമെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും കോടതി അറിയിച്ചു

ഇന്ന് തന്നെ പരിഗണിക്കണം എന്ന അപേക്ഷയും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്

രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി ഇടപെട്ട് അറസ്റ്റ് തടഞ്ഞിരുന്നു